മുസ്ലിം ക്രിസ്റ്റ്യൻ സിഖ് ബുദ്ധ പാഴ്സി സമുദായങ്ങളെ ന്യൂനപക്ഷങ്ങളായി കണക്കാക്കുന്ന വിജ്ഞാപനത്തിനെതിരായ പൊതുതാൽപര്യ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് എസ്

സമുദായത്തിന്റെ സംസ്ഥാനതല ജനസംഖ്യ പരിഗണിച്ച് ന്യൂനപക്ഷ പദവി നൽകാൻ മാർഗ്ഗ നിർദേശങ്ങൾ ഉണ്ടാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം എന്നാൽ രാജ്യവ്യാപകമായ ജനസംഖ്യ പരിഗണിച്ചായിരിക്കണം പദവി നൽകുന്നതെന്ന് ബെഞ്ച് ഉത്തരവിട്ടു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉണ്ടായ പ്രതിഷേധ സംഭവങ്ങൾ സി ബി ഐയോ കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘമോ അന്വേഷിക്കണമെന്ന ഹർജി സുപ്രീം കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുന്നത്

ചിലയിടങ്ങളിൽ കെ എസ്

ഇവരെ പൊലീസ് അറസ്റ്റു ചെയ്തു നീക്കി

എന്നാൽ സ്ഥകാര്യ ബസുകൾ സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾ പലയിടത്തും തുറന്നിട്ടുണ്ട് ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഹാജർനില പൊതുവെ കുറവാണ് കോഴിക്കോട് ജില്ലയിൽ കെ എസ് ആർ

സി ബസ് സർവീസുകൾ പൊലീസ് അകമ്പടിയോടെ നടത്തുന്നുണ്ടെങ്കിലും യാത്രക്കാർ വളരെ കുറവാണ്

കോഴിക്കോട് പാളയത്തും പുതിയ ബസ് സ്റ്റാന്റിലും ഹർത്താലിൽ വാഹനം തടയാൻ ശ്രമിച്ച ഇരുപതോളം പേരെ കസബ് പൊലിസ് കരുതൽ തടങ്കലിലാക്കി

ബി ഐക്ക് മുന്നിൽ പ്രകടനം നടത്തിയ ആറുപേരെ പൊലിസ് കസ്റ്റഡിയിലെടുത്തു നടക്കാവിൽ രണ്ട് പേരെ മുൻകരുതലായി സ്റ്റേഷനിലേക്ക് മാറ്റി വടകരയിൽ ഏഴ് പേരേയും താമരശ്ശേരിയിലും മുക്കത്തും രണ്ട് വീതം പേരെയും കരുതൽ തടങ്കലിലാക്കി കണ്ണൂർ ജില്ലയിൽ ഹർത്താൽ ഭാഗികമാണ് തളിപ്പറമ്പിൽ കെ എസ്

ടി സി സർവ്വീസ് നടത്തുന്നുണ്ട്

ഗ്രാമപ്രദേശങ്ങളിൽ കടകളും സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അതേ സമയം സ്ഥകാര്യ ബസുകള് ഓടുന്നില്ല തളിപ്പറമ്പ് നഗരത്തിൽ കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു ഉളിയിൽ നരയമ്പാറയിൽ വാഹനങ്ങൾ തടഞ്ഞു സ്ഥലത്തെത്തിയ പൊലിസിന് നേരെ കല്ലെറിഞ്ഞു

വയനാട് വെള്ളമുണ്ട മംഗലശേരിയിൽ കെ എസ് ആർ ടി സി ബസിന് നേരെ കല്ലേ റ്

പുൽപള്ളിയിൽ നാല് എസ്

ഐ പ്രവർത്ത കരെ മുൻകരുതലെന്ന നിലയിൽ കസ്റ്റഡിയിലെടുത്തു

ആർ ടി സിയും ഭാഗികമായി സ്വകാര്യ ബസുകളും സർവീസ് നട ത്തുന്നുണ്ട് കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നു എന്നാൽ ആലുവയിൽ തിരുവന്തപുരം മൂന്നാർ മിന്നൽ ബസ്സിനു നേരെ കല്ലേറു ണ്ടായി

ആലുവയിൽ ഹർത്താൽ അനു കൂലികൾ പ്രകടനം നടത്തി ഇതോടെ നഗരത്തിൽ കടകമ്പോളങ്ങൾ അടച്ചു കോട്ടയം ജില്ലയിൽ ഹർത്താൽ ഭാഗികവും സമാധാനപരവുമാണ്

വിദ്യാലയങ്ങളുടെയും ഓഫീസുകളുടെയും പ്രവർത്തനവും ഭാഗികമായി തടസപ്പെട്ടു

ഹർത്താലിനെ തുടർന്ന് ഇടുക്കിയിലെ ശാന്തൻപാറ പോലീസ് മൂന്ന് പേരെ അറസ്റ്റു ചെയ്ത് കരുതൽ തടങ്കിൽ പാർപ്പിച്ചു ദളിത് മൂമെന്റ് പ്രവർത്തക ഗോമതി എസ്

ഐ പ്രവർത്തകരായ ഷെബീർ കരിം എന്നിവരെയാണ് കരുതൽ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നത് ഹർത്താലിൽ കെ

സിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ മന്ത്രി എ

പൌരത്വ ഭേദഗതി നിയമത്തിൽ ഒരുതരത്തിലും കക്ഷിയല്ലാത്ത സംസ്ഥാന ഗവൺമെന്റിനെതിരെയും സ്ഥാപനങ്ങൾക്കു നേരെയും ആക്രമണങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്നും കെ എസ് ആർ ടി സി ബസുകൾക്ക് നേരെ അക്രമം നട ത്തുന്നത് അവസാനിപ്പിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അഭ്യർത്ഥിച്ചു ജിഎസ്ടി കൌൺസിൽ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും

കേന്ദ്രമന്ത്രിമാരുടെ കഴിഞ്ഞ ആറുമാസത്തെ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച മന്ത്രിമാരുടെ യോഗം വിളിച്ചു മുഴുവൻ മന്ത്രിമാർക്കും സെക്രട്ടറിമാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദേശം നൽകി യിട്ടുണ്ട് ആറുമാസത്തിനിടയിൽ നടപ്പാക്കിയ പദ്ധതികൾ യോഗത്തിൽ മന്ത്രിമാർ അവതരിപ്പിക്കണം ഇന്ത്യയുടെ ശബ്ദാതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഒഡീഷയിലെ ശാന്തിപൂരിൽ വിജ യകരമായി പരീക്ഷിച്ചു കരയിലെ താവളങ്ങൾക്ക് നേരെ കരയിൽ നിന്ന് ഫലപ്രദ മായ ആക്രമണം നടത്താവുന്ന മിസൈലാണ് രാവിലെ പരീക്ഷിച്ചത് പരീക്ഷണം പൂർണ്ണ വിജയകരമായിരുന്നുവെന്ന് ഡി

ഒ കേന്ദ്രങ്ങൾ ബാലസോറിൽ അ റിയിച്ചു നിർഭയ കേസിൽ വധശിക്ഷ വിധിച്ചതിനെതിരെ പ്രതി അക്ഷയ്കുമാർ സിങ് സമർപ്പിച്ച പുനപരിശോധനാ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ആർ ഭാനുമതി അശോക് ഭൂഷണൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉച്ചകഴിഞ്ഞ് വാദം കേൾക്കുന്നത്

മറ്റൊരു പ്രതി തിഹാർ ജയിലിൽ ആത്മഹത്യ ചെയ്തു അക്രമ സംഭവ്ങളെ തുടർന്ന് അസം തലസ്ഥാനമായ ഗുവാഹത്തിയിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ പൂർണ്ണമായും പിൻവലിച്ചു ബ്രോഡ്ബാൻഡ് സേവനങ്ങളും പുനഃസ്ഥാപിച്ചു സംസ്ഥാനത്ത് സ്ഥിതി സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്ന് അസം ധനമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ആരംഭിക്കും മാറ്റിവെച്ച ഇന്തോ ജപ്പാൻ ഉച്ചകോടി ഗുവാഹത്തിയിൽ തന്നെ നടക്കുമെന്നും തീയതി പിന്നീട് നിശ്ചയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മസ്റ്ററിങ്മൂലം കിടപ്പു രോഗികൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ലെന്ന പ്രചരണം അടിസ്ഥാന രഹിതമാണെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് തിരുവനന്തപു രത്ത് അറിയിച്ചു ഇവർക്ക് ഈ മാസം തന്നെ പെൻഷൻ ലഭിക്കും

ബാക്കിയുള്ളവർ പഞ്ചായ ത്തിൽ ലൈഫ് സർടിഫിക്കറ്റ് നൽകുകയും വീട്ടിലെത്തി മസ്റ്ററിങ് നടത്തണമെന്ന് രേഖാമൂലം ആവശ്യപ്പെടുക്കയും ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം പെൻഷൻ ലഭ്യമാ ക്കുമെന്നും കിടപ്പുരോഗികളായ ആർക്കും പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാ വില്ലെന്നും ധനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു ഇടുക്കിയിലെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു

മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ചയിൽ റവന്യൂ മന്ത്രിയും ഇടുക്കിയിലെ നേതാക്കളും പങ്കെടുക്കുമുണ്ട്

നിസാരമായ വായ്പകളുടെ പേരിൽ കർഷകരെ ബാങ്കുകൾ ദ്രോഹിക്കരുതെന്ന് മന്ത്രി വി

വോട്ടെ ണ്ണൽ നാളെ രാവിലെ പത്തിന് ആരംഭിക്കും തിരുവനന്തപുരത്ത് ബംഗാളിനെതിരായ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് മൂന്ന് വിക്കറ്റ് നഷ്ടമായി

കോഴിക്കോട് ജില്ലയിലെ ആനയാക്കുന്ന് ഹ്യർസെക്കന്ററി സ് കൂളിലെ പട്ടികജാതിക്കാരിയായ പ്ലസ് വൺ വിദ്യാർഥിനി ആത്മഹത്യ ചെയ്ത കേസിൽ പട്ടികജാതി പട്ടികഗോത്ര വർഗ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ കുടുംബം വിദ്യാർഥിനിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് കമ്മീഷൻ ചെയർമാൻ ബി

മാവോജി വെള്ളിയാഴ്ച പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തും ദേവസം ബോർഡും വനം വകുപ്പും തമ്മിലെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അഭിഭാഷക കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൻമേൽ വനം വകുപ്പിന്റെ വാദം ഇന്ന് തുടങ്ങും

ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ എ

പി കുറുപ്പിന്റെ വാദം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു